ഇന്ത്യ ബംഗ്ലാദേശ് വെർചൽ ഉച്ചകോടിയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം പങ്കെടുക്കൂക്യായിരുന്നു അദ്ദേഹം

ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ സ്മരണാർദ്ധം പുറത്തിറക്കിയ സ്റ്റാമ്പ് ഇരു പ്രധാനമന്ത്രിമാരും സംയുക്തമായി പ്രകാശനം ചെയ്തു

ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാന മന്ത്രിമാർ സംയുക്തമായാണ് റെയിൽ പാത തുറന്നത്

ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലെ ഗതാഗത്യും സ്ഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാ്ധിക്കും മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടാനും ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്താനും സായിക്കും

അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനുശേഷം ഇതിലൂടെ യാത്ര സൌകര്യം ഏർപ്പെടുത്തും കൊൽക്കട്ട സിലിഗുരി ബ്രോഡ്ഗേജ് പ്രധാന പാതയുടെ ഭാഗമാണ് ഹൽദിബാരി ചിലഹട്ടി റെയിൽപാത പാത ഉദ്ഘാടനം ചെയ്യുന്നതോടെ മുൻപു നിലവിലുണ്ടായിരുന്ന ആറിൽ അഞ്ച് റെയിൽവേ പാതകളും പ്രവർത്തനസജ്ജമാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബോറിസ് ജോൺസൺ അയച്ച ക്ഷണക്കത്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് കൈമാറി

വിദേശകാരൃമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി

അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനങ്ങളെടുക്കാൻ നേപ്പാളിന് അധികാരമുണ്ട് എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും പ്രദേശത്തെ മറ്റു രാജ്യങ്ങളുമായി കരാറിലേർപ്പെടുമ്പോൾ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽനിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ഒരു ചടങ്ങിൽ സംസാരിക്കവേ അഭിപ്രായപ്പെട്ടു

ഇന്ന് പുലർച്ചെ അട്ടാരി അതിർത്തിക്ക് സമീപമാണ് അതിർത്തി രക്ഷാസേനയും തീവ്രപ്പാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് പ്രദേശത്തു നിന്ന് നിർവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷാസേന കണ്ടെടുത്തു

കരിമ്പ് ഉത്പാദനം വർധിപ്പിക്കുന്നതിനും കർഷകരുടെ ക്ഷേമത്തിനും ശക്തി പകരുന്നതാണ് തീരുമാനം എന്നും ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു

രോഗമുക്തി നിരക്കിൽ തുടർച്ചയായുണ്ടാകുന്ന വർധന തുടരുകയാണ്

വാക്സിന്റെ പ്രതിരോധശേഷി സംബന്ധിച്ച് ഇവർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് ആണ് വാക്സിൻ വികസിപ്പിക്കുന്നത് വാക്സിൻ ആളുകളിൽ ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉളവാക്കുന്നില്ലെന്നും ഇത് സ്വീകരിക്കുന്നവരുടെ രോഗ പ്രതിരോധശേഷി മെച്ചപ്പെടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു

കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് ശബരിമലയിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു

പത്ത് വർഷത്തിനു ശേഷമാണു കൊച്ചി കോർപ്പറേഷൻ ഇടതു മുന്നണിക്കു ലഭിക്കുന്നത്

ജെ

സംസ്ഥാന സർക്കാരിന്റെ അഴിമതി തുറന്ന് കാട്ടുന്നത് തുടരുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

ട്ടോസ്റ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തുന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി